നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പൊലീസ് ു

എൺപ തോളം പേരെയാണ് ഇന്നലെ രാത്രി നട അടച്ചശേഷം പൊലീസ് കസ്റ്റഡിയിലെടുത്തത് നെയ്യഭിഷേകത്തിന് ടിക്കറ്റ് ഇല്ലാത്തവരും ഇരുമുടിക്കെട്ടില്ലാത്തവരും സന്നി ധാനത്ത് നിന്നും മാറണമെന്ന് രാത്രി പൊലീസ് ആവശ്യപ്പെട്ടിരുന്നു

അറസ്റ്റ് ചെയ്തവരെ കേരള സായുധസേ നയുടെ മണിയാർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് നിരോധനാജ്ഞ ലംഘിച്ച് സന്നിധാനത്ത് പ്രതിഷേ ധിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പൊലീസ് സൂപ്രണ്ട് പ്രതീഷ്കുമാർ അറിയിച്ചു നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയില്ലെന്നും എസ് പി ശബരിമലയിൽ വ്യക്തമാക്കി ഹരിവരാസനം പാടി നട യടച്ചതിനുശേഷം പിരിഞ്ഞുപോകാമെന്ന് പ്രതിഷേധ ക്കാർ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ അവർ വാക്കു പാലിക്കാത്തതിനാലാണ് നടപടി വേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധക്കാർ സന്നിധാനത്ത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന വിവരത്തെ തുടർന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തതെന്ന് പൊലീസ് പറഞ്ഞു ശബരിമലയിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ മുതൽ ഭക്തരുടെ വൻതിരക്കാണ് പൊലീസ് സുരക്ഷ ശക്തമാക്കി

തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിനു മുന്നിൽ നാമ ജപ പ്രതിഷേധം നടത്തി പുലർച്ചെ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയവരെ ദേവസംബോർഡ് ജംഗ്ഷനിൽ പൊലീസ് തടഞ്ഞു സ്ത്രീകളുൾപ്പെട്ടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു

തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം പത്തനംതി ട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു ആറന്മുള കൊച്ചി കൊല്ലം റാന്നി തൊടുപുഴ കാല ടി മലപ്പുറം ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലും അയ്യപ്പ കർമ സ മി ്തി യു ടെയും അയ്യ പ്പ സം ര ക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു

തൃശൂരിലേക്ക് പോകു കയായിരുന്ന ബസിനു നേരെയാണ് കല്ലെറിഞ്ഞത്

സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയ്ക്കു സമാ നമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡണ്ട് പ്രകാശ് ബാബു ശബരിമലയിൽ പറഞ്ഞു

രാവിലെ ഒൻപതിന് പമ്പയിലെത്തുന്ന അദ്ദേഹം സന്നിധാനത്തേക്ക് പോകും കേരളത്തിനു പുറത്തെ ഏതാനും ബി ജെ പി എം എൽ എ മാരും കണ്ണന്താന ത്തോടൊപ്പമുണ്ടാകുമെന്നും പാർട്ടി സംസ്ഥാന പ്രസി ഡണ്ട് പി എസ് ശ്രീധരൻപിളള പത്തനംതിട്ടയിൽ അറിയിച്ചു തീർത്ഥാടകർക്ക് അടിസ്ഥാനസൌകരൃ ങ്ങൾപോലും നിഷേധിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമലയിൽ ഇത്തവണത്തെ തീർത്ഥാടനം പൊലീസ് രാജിൽ ഒതുക്കിയെന്ന് കോൺഗ്രസ് നേതാ ക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ പ്രകാശ് വി എസ് ശിവകുമാർ എന്നിവർ അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ പഠിക്കാൻ കെ പി സിസി നിർദ്ദേശമനുസരിച്ച് എത്തിയ അവർ പമ്പയിലും സന്നിധാനത്തും സന്ദർശനം നടത്തി യശേഷം മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ദർശനത്തിനെത്തുന്ന അയ്യപ്പൻമാരെ ഓരോ സ്ഥലത്തും അനാവശ്യമായി തടയുന്നതായും ദാഹജലം പോലും അവർക്കു ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഗുരു തര ആചാര ലംഘനമാണ് ശബരിമലയിൽ നടക്കുന്ന തെന്നും ഗവൺമെന്റ് അടിസ്ഥാന സൌകരൃങ്ങൾ ഒരു ക്കിയിട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെ ടുത്തി റിപ്പോർട്ട് ഇന്ന് ദേവസം ബോർഡിന് കൈമാറും ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവ ദിച്ച വിധി നടപ്പാക്കുന്നതിന് സാവകാശം തേടി തിരുവിതാംകൂർ ദേവസംബോർഡ് ഇന്ന് സുപ്രീംകോ ടതിയിൽ പ്രത്യേക ഹർജി നല്കും

സീനിയർ അഭിഭാഷകൻ ചന്ദ്രഉദയ സിംഗ് ബോർഡിനുവേണ്ടി സുപ്രീംകോടതിയിൽ ഹാജ രാകും

മന്ത്രി കെ ടി ജലീലിനെതിരായ സമരം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും രാജ്യത്ത് ക്വാമി ഏകതാവാരം ഇന്നാരംഭിക്കും മതസൌഹാർദ്ദം അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യ ത്തോടെ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ദേശീയോദ്ഗ്രഥന വാരാഘോഷ കാലത്ത് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കും ഗവൺമെന്റ് ഓഫീസുകളിൽ ജീവനക്കാർ രാവിലെ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയെടുക്കും വർഗ്ഗീയതയ്ക്കും ഹിംസയ്ക്കും എതിരായ സന്ദേശങ്ങളും മത്തേത്വത്തിന്റെ പ്രാധാ ന്യവും ഉയർത്തിക്കാട്ടി ഇന്ന് സെമിനാറുകളും സിമ്പോ സിയങ്ങളും സംഘടിപ്പിക്കും

സമാപന ദിവസമായ ഞായറാഴ്ച സാമുദായിക സൌഹാർദ്ദ പതാക ദിനമായി ആചരിക്കും

കെ പി സിസി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാവിലെ പുഷ്പാർച്ചനയും അനുസ്മ രണ സമ്മേളനവും നടക്കും

രണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റു ഹെഡ് കോൺ സ്റ്റ ബിൾ ചന്ദ്രികപ്രസാദാണ് മരിച്ചത് ഗ്രനേഡ് ലോഞ്ചർ ഉപയോഗിച്ച് സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ ഇന്നലെ രാത്രി ഗ്രനേഡ് ആക്രമണം നട ത്തുകയായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു സംസ്ഥാനത്ത് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടു പ്പിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഈയിടെ സ്ഥാപിച്ച സൈനിക ക്യാമ്പിനു നേരെയായിരുന്നു ആക്രമണം

മോട്ടോർസൈക്കിളിലെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് പൊലീസ് പറഞ്ഞു ഐ എസ് ഐ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കൾമീരി തീവ്രവാദി കളാണ് ആക്രണമണത്തിന് പിന്നിലെന്ന് സംശയിക്കു ന്നതായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഛണ്ഡീഗഡിൽ

ജയ്പൂരിൽ ദേശീയ സീനിയർ സ്കൂൾ ഫുട്ബോ ളിൽ കേരളം സെമിയിൽ കടന്നു കാർട്ടറിൽ ഗുജറാ ത്തിനെ ട്രൈബ്രേക്കിൽ അഞ്ചിനെതിരെ ആറ് ഗോളു കൾക്ക് കീഴടക്കിയാണ് കേരളം സെമിഫൈനലിൽ എത്തിയത് ഇന്ന് സെമിയിൽ കേരളം ബംഗാളിനെ നേരിടും കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യൻമാരായ മിനർവ പഞ്ചാബിനെ തോൽപ്പിച്ചു ഇതോടെ അഞ്ച് കളിയിൽ രണ്ട് ജയവും രണ്ട് സമനിലയും ഒരു തോൽവിയുമായി ഗോകുലം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി കാനഡയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ലക്ഷ്യാസെൻ വെങ്കലം നേടി പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ തായ്ലന്റ് താരത്തോട് പരാജയപ്പെട്ടതോടെയാണ് ലക്ഷ്യ വെങ്കലത്തിലൊതു ങ്ങിയത് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് വൃശ്ചിക മാസത്തെ വെളുത്തപക്ഷ

ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഈ ദിവസമാണെന്നാണ് സങ്കൽപ്പം ഇന്നലെ രാത്രി മുതൽ ഭക്തരുടെ വൻ തിരക്കാണ് ഗുരുവായൂരിൽ

സംസ്ഥാന വെയർ ഹൌസിങ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പാലക്കാട് ആലത്തൂർ മോഡേൺ റൈസ് മിൽ പുനപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കു ന്നതിന് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വലിയ പങ്കു വ ഹി ക്കു ന്നു ണ്ടെന്ന് മന്തി രാമ ച ന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു അക്ഷയ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അക്ഷയ പദ്ധതിയെ സമ്പൂർണ ബ്രാന്റഡ് ആക്കു ന്നതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു കണ്ണൂർ ജില്ല യെയാണ് ഇത്തരത്തിൽ ആദ്യ ബ്രാന്റഡ് ജില്ലയാക്കു ന്നത്

ആരോഗൃകരമായ ആഹാരം ശീലമാക്കുന്നത് വിവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാഹായിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ കണ്ണൂർ മട്ടന്നൂരിൽ പറഞ്ഞു വിവിധ രോഗങ്ങൾക്ക് കാരണം ഇന്നത്തെ ആഹാര ശീല മാണ് ഭക്ഷണ ക്രമീകരണത്തിലൂടെ വലിയ മാറ്റമുണ്ടാ ക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു ആയുഷ് ശ്രീ ആയുഷ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗ ങ്ങൾക്കായി സ്ഫംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേ ളനം ഇന്ന് കോഴിക്കോട്ട് നടക്കും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് ടൌൺഹാളിൽ സംഘടിപ്പി ക്കുന്ന പ്രളയം അതിജീവനം ഫോട്ടോ പ്രദർശനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

സമാപന സമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡണ്ട് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു

സുസ്ഥിര വികസന മാതൃകയായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഇടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമിച്ച വീടുകൾ കാണാനും പദ്ധതിയുടെ പുരോഗതി പഠിക്കാനുമായി യുണൈറ്റഡ് നേഷൻസ് അക്കാഡമിക് ഇംപാക്ടിന്റെ പ്രതിനിധികൾ കൊല്ലം ജില്ലയിലെത്തി പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ സംഘം സന്ദർശിച്ചു നിർമാണവൈദഗ്ധൃവും പദ്ധതിയുടെ പ്രവർത്തന രീതിയും യു

പ്രതിനിധികൾ വിലയിരുത്തി

മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കൊപ്പമാണ് സംഘം വീടുകൾ സന്ദർശിച്ചത്

ചുഴലിക്കാറ്റിനിരയായവർക്ക് സഹായം നൽകു ന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് പ്രതിഷേധം ഉയരുന്നതിനിടെ ദുരിതാശ്ചാസ പ്രവർത്ത നങ്ങളിൽ പങ്കുചേരണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് മുഖ്യമന്ത്രി കെ പളനിസാമി അഭ്യർത്ഥിച്ചു

റിസർവ് ബാങ്കിന്റെ നിർണായക കേന്ദ്ര ബോർഡ് യോഗം ഇന്ന് മുംബൈയിൽ ചേരും